കേരളത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ള തിരുവനന്തപുരം നഗരപരിധിയിലെ ഓഫീസുകളുടെ പ്രവർത്തനത്തിന് പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി

തിരുവനന്തപുരം സ്വർണ കള്ളക്കടത്തു കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷ് സന്ദീപ് നായർ എന്നിവരെ കൊച്ചിയിലെ എൻ

എ കോടതി റിമാന്റ് ചെയ്തു

വിശദാംശങ്ങളുമായി ലിൻസ സിറാജ്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കോവിഡ് പ്രതിരോധത്തിൽ കൈവരിച്ചു നേട്ടം ലോകം ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് സർക്കാർ സംവിധാനം മാത്രമല്ല രാജ്യത്തെ ഓരോ പൌരനും ഈ പോരാട്ടത്തിൽ സജീവ പങ്കാളിയാണ്

ഭീകരതയ്ക്കെതിരെ മാത്രമല്ല ജനപങ്കാളിത്തതോടെ കോവിഡി നെതിരെ പോരാടാനും കഴിയുമെന്ന് സുരക്ഷാസേന തെളിയിച്ചിരി ക്കെയാണെന്ന് ശ്രീ

കേന്ദ്രവും സംസ്ഥാനങ്ങളും സ്വീകരിച്ച പ്രതിരോധ നടപടികൾ രോഗമുക്തി നിരക്കിലെ ക്രമാനുഗതമായ വർധനവിന്ക്കാരണമായതായി കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

ഈ മഹാമാരിയെ ഒരു ദുരന്തമായി മാത്രം കാണാതെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരമായി മാറ്റണമെന്ന് ഉപരാഷ്ട്രപതി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു

ഞായറാഴ്ച അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് സംസ്ഥാന സർക്കാർ നിർദേശിച്ചു

ജമ്മുകാശ്മീർ ബി ജെ

പ്രധാന മന്ത്രി നരേന്ദ്രമോദിയ്ക്കുവേണ്ടി വസിംബാരിയുടെ കുടുംബത്തെ അനുശോചനം അറിയിച്ചതായി ശ്രീ ജിതേന്ദർസിംഗ് ടിറ്ററിൽ കുറിച്ചു

റിട്ടയേർഡ് ജസ്റ്റിസ് ശശി കാന്ത് അഗർവാളാണ് കമ്മീഷനായി പ്രവർത്തിിക്കുക

ആലപ്പുഴ നാലും തിരുവനന്തപുരം രണ്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ ഒരു ഡി

ജവാനും ഒരു സി ഐ എസ്

പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരുമായി മന്ത്രി ആശയവിനിമയം നടത്തി

അവശ്യ സർവ്വീസുകൾ തടസ്സം കൂടാതെ നടത്താൻ വകുപ്പ് മേധാവികൾ ക്രമീകരണങ്ങൾ നടത്തണം

വന്ദേ ഭാരത് മിഷൻ വഴി എത്തിയ പ്രവാസികൾക്ക് സർക്കാർ ഗൌരവമായ സഹായം ചെയ്തില്ല കാസർകോട് ശ്യാമപ്രസാദ് മുഖർജി മന്ദിരം ഓൺലൈൻ മുഖേന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഐ

ഇവരെ തൃശൂർ കറുകുറ്റി എന്നിവിടങ്ങളിലെ കോവിഡ് കെയർ സെന്ററിലേയ്ക്ക് മാറ്റി

ആസ്ഥാനത്ത് പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇവരെ എൻ ഐ എ

കനത്ത സുരക്ഷയാണ് എൻ

എ

ആറ് ദിവത്തെ ക്യാംപ് കോഴിക്കോട് ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ എ വൈ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു